പ്രതീക്ഷിച്ചതിലും വളരെ മുൻപുതന്നെ രാജ്യം ശക്തമായ ് സാമ്പത്തിക തിരിച്ചു വരവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് യ്യോഗ്പ് വിലയിരുത്തി സാമ്പത്തിക വിദഗ്ധരുടെ സംഭാവനക്കളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഇത്തരം ഇടപെടലുകൾ രാജ്യത്തിന്റെ വികസന അജണ്ട രൂപീകരിക്കുന്നതിൽ നിർണ്ടായക്ക് പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ധനമന്ത്രി നിർമ്മല്ലാ സീതാരാമൻ ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ നീമീ ് ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ സി ഇ ഒ ് അമിതാഭ് കാന്ത് എന്നിവരും മറ്റ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും യോഗത്തിൽ പങ്കെടുത്തു

വാക്സിനേഷൻ നടപടികൾക്കുള്ള മുന്നൊരുക്കങ്ങളം യോഗം ചർച്ച ചെയ്യും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമാപനപ്രസംഗം നടത്തും രണ്ടുവർഷത്തിലൊരിക്കൽ നടത്തുന്ന സമ്മേളനം പ്രവാസികളായ ഇന്ത്യൻ സമൂഹത്തിന്റെ ഇന്ത്യാ ഗവൺമെൻുമായുളള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്

പ്രവാസികളുടെ പങ്ക് കോവിഡാനത്തർ വെല്ലുവിളികൾ നേരിടൽ എന്നീ വിഷയങ്ങളിൽ പ്ലീന്റി ് സമ്മേളനം നടക്കും

ഇത്തവണ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഴ വിർചലായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ്ഡെസ്ക് ആകാശവാണി

വിദേശകാര്യബന്ധം വർദ്ധിപ്പിക്കുന്നതിന് പൊതുനയവും കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചതായി വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്നും കിം ജോങ് ഉൻ ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു

പ്രധാനമന്ത്രിയുടെ ഡിജിറ്റൽ ഇന്ത്യ സങ്കല്പത്തിന് അനുസൃതമായിട്ടാണ് ഡിജിറ്റൽ കലണ്ടർ ്തിയ്യാറാക്കിയിട്ടുള്ളത്

മഹാരാഷ്ട്രയിലെ ദേശീയപാത നിർമ്മാണ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പരിപാടിയിൽ കളക്ടർമാർ നേതൃത്വം നൽകി കോവിഡ് വാക്സിനെത്തുമ്പോൾ വിത്രണം സുഗമമാക്കുന്നതിനായാണ് വിപുലമായ രീതിയിൽ രണ്ടാമതും ഡ്രൈ റൺ നടത്തിയത്

ഇതുവരെ കേരളം രാജസ്ഥാൻ മധ്യപ്രദേശ് ഹിമാചൽപ്രദേശ് ഹരിയാന ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷിപ്പനി ബാധിച്ച കേരളത്തിലെ രണ്ട് ജില്ലകളിലും കേന്ദ്രസംഘം ഇന്നും സന്ദർശനം നടത്തും

മൽസരങ്ങളുടെ മുന്നൊരുക്കങ്ങൾ ലെഫ്റ്റനന്റ് ഗവർണറുടെ ഉപദേഷ്ടാവ് ഫാറൂഖ് ഖാൻ വിളിച്ച യോഗത്തിൽ വിലയിരുത്തി

ന്യൂ ഇന്ത്യ അഷറ്റൻസ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്

ഇതനുസരിച്ച് വിശദമായ കർമപദ്ധതി ഒരാഴ്ചയ്ക്കകം തയാറാക്കാൻ ആരോഗ്യവകുപ്പിന് നിർദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു